ക്ഷമമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ്റ് കൊച്ചിയിൽ വൻ മയക്കുമരുന്നുവേട്ട

മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ്റ്

സൈനൃത്തിന്റെ മനോവീരൃത്തിനും രാജൃതാത്പരൃ ത്തിനും ദോഷകരമായ രീതിയിലേക്ക് ഈ നടപടികൾ മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു കാർഗിൽ വിജയദിവസം പോലും ആഘോഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നി ല്ലെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ന്യൂഡൽഹിയിൽ നമോ ആപിലൂടെ ബി ജെ പി ബൂത്ത്തല പ്രവർത്തകരുമായി സംവദിക്കുക യായിരുന്നു നരേന്ദ്രമോദി ബി ജെ പി പ്രവർത്തകർ പാരാക്രം പർവ് ഉചിതമായി ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു മൂന്ന് ദിവസത്തെ പരാക്രം പർവ് ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും പ്രിധാന ചടങ്ങുകൾ നടക്കുന്ന ഇന്ത്യാഗേറ്റിൽ ഇന്നലെ ആയിരങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തു ഭീകരപ്രവർത്തകരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ടവീര്യം പ്രകടമാക്കുന്ന ചിത്രങ്ങളും പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നുണ്ട് ലലലലലലലലലലലലല പുതിയ ഇന്ത്യയുടെ സൃഷ്ടിക്ക് സ്വച്ഛ് ഭാരത് ദൌത്യം നിർണ്ണായകമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

നാല് ദിവസത്തെ കൺവൻഷനിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്

വിമാനത്താവളത്തിന് ലൈസൻസ് ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

തിരുവന്തപുരത്ത് കിയാലിന്റെ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുക യായിരുന്നു മുഖ്യമന്ത്രി

എം ജി റോഡിലെ കൊറിയർ കമ്പനിയുടെ പാഴ്സൽ പാക്കറ്റിൽ പ്രത്യേക കാർബൺ പേപ്പറിൽ പൊതിഞ്ഞ് തുണികൾക്കിട യിലാണ് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് വിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നർക്കോട്ടിക് സ്പെ്ഷ്യൽ സ്കാഡാണ് പാക്കറ്റുകൾ പരിശോധിച്ച് മയക്കുമരുന്ന് കണ്ടെടുത്തത് എക്സറ്റസി എന്നും മോളി എന്നും അറിയപ്പെടുന്ന എംഡിഎംഎ ലോകവ്യാപകമായി നിരോധിച്ച വീര്യമേറിയ ലഹരിമരുന്നാണ് ലഹരികടത്താൻ ശ്രമിച്ചവരെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം ത്വരിതപ്പെടുത്തി

അടുത്ത മാസപൂജ വേളയിലെ തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കാനാവശൃമായ നടപടികളും മുന്നൊരുക്കങ്ങളും ചർച്ചയിൽ ഉന്നയിച്ചേക്കുമെന്നാണ് സൂചന ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുധനാഴ്ച ദേവസംബോർഡ് യോഗം ചേരുന്നുണ്ട്

മാസങ്ങൾക്കുമുമ്പ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തിനിടെ ഗുണ്ടാസംഘം ഇയാളെ പൊലീസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു ഇന്നലെ ചെന്നൈയിൽ പൊലീസിനെ എതിർത്ത ഗുണ്ടാസംഘത്തെ ആകാശത്തേക്ക് വെടിവെച്ച് പിരിച്ചയച്ചാണ് മഹാരാജനെ പൊലീസ് പിടികൂടിയത് ഇയാളെ ഇന്ന് വിമാനത്തിൽ കൊച്ചിയി ലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്

മേഴ്സിക്കുട്ടിയമ്മ നാടിന് സമർപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്ലിനിക്ക് പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ എന്നിവയുടെ ഉദ്ഘാടനവും രണ്ടേകാൽ കോടി രൂപ ചെലവിൽ നിർമിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു

പി കെ ശശി എം എൽ എയ്ക്കെതിരായ ലൈംഗികാരോപണത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ യോഗം തീരുമാനമെടുത്തേക്കും സംസ്ഥാനസമിതിയ് ക്ക് മുന്നോടിയായി രാവിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേരും

ദൂരദർശൻ ചാനലുകളും മൻ കി ബാത് സംപ്രേഷണം ചെയ്യും പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം കഴിഞ്ഞാലുടൻ കേരള നിലയങ്ങൾ മലയാളപരിഭാഷ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം

കൊൽക്കത്തിയിൽ എ ടി കെ കൊൽക്കത്തയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബെങ്കലൂരുവിൽ ഇന്ന് ബെങ്കലൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും വൈകീട്ട് ഏഴരയ്ക്കാണ് മത്സരം

ആദ്യ രണ്ടു ദിവസങ്ങളിലെ പത്ത് മത്സരങ്ങളിലും ഇന്ത്യ സ്വർണം നേടി കഴിഞ്ഞ ഏഴ് ചാമ്പ്യൻഷിപ്പുകളിലും ഇന്ത്യ തന്നെയായിരുന്നു ജേതാക്കൾ ഇന്ന് വൈകീട്ട് സമാപനസമ്മേളനം ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും ജേതാക്കൾക്ക് അദ്ദേഹം മെഡലുകളും സമ്മാനിക്കും

അടുത്തമാസം നാലിന് രാജ്കോട്ടിലാണ് ആദ്യ ടെസ്റ്റ് മത്സരം ലലലലലലലലലലലല പ്രപളയക്കെടുതിയിൽ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നല്കാൻ നടപടിയെടുക്കുമെന്നും ക്ഷീരകർഷക സുരക്ഷാ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി എ കെ ബാലൻ പാലക്കാട്ട് പറഞ്ഞു

ലക്കകകകകകകകകകകകകക പ്രളയക്കെടുതിക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന നിബന്ധനകളിൽ ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് മാറ്റം വരുത്തണമെന്ന് ജില്ലാ വികസന സ്മിതി യോഗം സംസ്ഥാന ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു ഭൂമിയും വീടും ആസ്തിയും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരമായി ഭൂമിക്കും വീടിനുമൊപ്പം ജീവന ഉപാധികളും നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു

കുട്ടികളുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ പറയാനും കേൾക്കാനും സാഹചര്യമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

ജയശ്രീ അറിയിച്ചു ഊഹാപോഹങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ല മരിച്ചയാളുടെയും ആ വീട്ടിൽ പനി ബാധിച്ച മറ്റ് രണ്ട് പേരുടെയും സാമ്പിളുകൾ ശേഖരിച്ച് മണിപ്പാൽ വൈറോളജി കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ലഭൃമായിട്ടില്ലെന്നും ഡി എം ഒ അറിയിച്ചു

അർഹമായ പരിഗണന നല്കുന്നുണ്ട് മാഹി നഗരസഭയുടെ ഇ

ഏറ്റുവാങ്ങിയായിരുന്നു

വാരാഘോഷ ത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു

തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പ്രധാന റോഡുകളിൽ പ്രളയത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരി ക്കാനും ഉടൻ ഗ്രനടപടിയെടുക്കും കൂടുതൽ ശുചിമുറികളും അടിസ്ഥാനസൌകര്യങ്ങളും ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു